നിയന്ത്രണങ്ങൾ ക്ടർശ്യൻമാക്കി പോലീസ്

പുതുക്കി സ്വകാര്യ ആശുപത്രികളിലും കൊവിഡ് ഒ പി ആരംഭിക്കും

അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും

ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിന് പോലീസ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പകലും രാത്രിയും വ്യാപക പരിശോധന നടത്തി വരികയാണ് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും പരിശോധനകളും ഇന്നു മുതൽ കൂടുതൽ ശക്തിപ്പെടുത്താനും ഡിജിപി നിർദേശിച്ചിട്ടുണ്ട് ഇടറോഡുകളിലും ജില്ലാ സംസ്ഥാന അതിർത്തികളിലും പോലീസ് പരിശോധനക്ക് കർശന സംവിധാനം ഒരുക്കി താത്കാലികമായി സ്ഥാപിച്ച ചെക്ക് പോയിന്റുകളിൽ സത്യവാങ്മൂലം ഉണ്ടെങ്കിലും വിശദമായി പരിശോധിച്ചു ഉറപ്പു വരുത്തിയശേഷമാണ് അവശ്യ യാത്രക്കാട്ടിരു കടത്തിവിടുന്നത്

കൊവിഡ് വ്യാപനം രൂക്ഷമായ ജില്ലകളിൽ ഇതിലും ഗുരുതരമാണ് അവസ്ഥ

സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന മരണ നിരക്കും ഇന്നലെ രേഖപ്പെടുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സിപ്പിക്ക് നേതൃത്വവുമായി രണ്ടാംഘട്ട ചർച്ചയും എൻ സി

അംഗമുള്ള കക്ഷികളിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് കേര്ള കോൺഗ്രസ് ബി എന്നിവയ്ക്കും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം എന്നാണ് സൂചനകൾ

പുതിയതായി മുന്നണിയിലേക്കെത്തിയതിൽ കേരള കോൺഗ്രസിനു മാത്രമാകും മന്ത്രിസ്ഥാനം നൽകുക എന്നാണു സൂചന

ഇതനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ പനി ക്ലിനിക്കുകളും കോവിഡ് ക്ലിനിക്കുകളാകും സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ ആശുപത്രികളിലും കൊവിഡ് ഒ പി ആരംഭിക്കണമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു

താലൂക്ക് ആശുപത്രികളിൽ പരമാവധി ഓക്സിജൻ കിടക്കൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്

രമേശ് ഏച്ണീത്തല പ്രതിപക്ഷ നേതൃത്വത്തിൽ തുടരുന്നത് സംബന്ധിച്ചുപ്പ്പി

തിരുവനന്തപുരം ജില്ലാ കളക്ടർ കോവിഡ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടാൽ ആശുപത്രി ബില്ല് പൂർണമായി അടയ്ക്കും വരെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുന്ന സ്വകാരൃ ആശുപത്രികൾക്കെതിരേ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോ

ജില്ലയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാകും

ഒരു കോടി ഡോസ് വാക്സീൻ കമ്പനികളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് വാക്സിൻ എത്തിയത്

ശൈലജ കണ്ണൂർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദിവസവും ജാഗ്രതാസമിതി ചേർന്ന് പ്രതിരോധപ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്ന് മന്ത്രി കെ

മട്ടന്നൂർ മണ്ഡലത്തിലെ വിവിധ വകുപ്പ്തല മേധാവിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി

അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ഓക്സിജൻ സൌകര്യത്തോടു കൂടിയുള്ള ഓട്ടോറിക്ഷകൾ സജ്ജമാക്കി മോട്ടോർ വാഹന വകുപ്പ് എറണാകുളം എൻഫോഴ്സ്മെന്റ് വിഭാഗം ആർ

ആലുവ ഈസ്റ്റ് പൊലീസാണ് കേസെടുത്തത്

ദുരന്തനിവാരണൂ അ്യോ്റിറ്റിയുടെ കീഴിലുള്ള ഇന്റർ ഏജൻസി ഗ്രൂപ്പ് അംഗമായി ഫ്മയർ എന്ന സന്നദ്ധ സംഘടനയാണ് ഈ ദ്യിയ്യം നിർവ്വഹിക്കുന്നത്

വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും